കാർഷിക രംഗത്തെ പരിഷ്ക്കാരങ്ങൾ കർഷകരെയും സമൂഹത്തെയും ശാക്തീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

മൂന്നിന് നടക്കും കുട്ടനാട് ചമ്പൂർ മീണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ഉപേക്ഷിക്ട്രാൻ തീരുമാനം

കേരളത്തിൽ കോവിഡ് സമ്പർക്ക വ്യാപനത്തിൽ വൻ വർദ്ധന

ഒറ്റക്കെട്ടായി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ സർവകക്ഷി യോഗത്തിൽ ധാരണ

റൺസിന് ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തി

ഉത്തരാഖണ്ഡിൽ നമാമി ഗംഗാ ദൌത്യത്തിന്റെ ആറ് വൻകിട പദ്ധതികൾ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി

കാർഷിക വിളകളുടെ കുറഞ്ഞ താങ്ങുവില തുടരുമെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു വൃക്തമാക്കി സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമം പ്രതിപക്ഷം ഉപേക്ഷിക്കണമെന്ന് ശ്രീ

താ്ങ്ങുവിലക്കു പുറമെ തങ്ങളുടെ ഉല്പന്നങ്ങൾ എവിടെയും വില്ക്കാട്നുള്ള് സ്വാതന്ത്ര്യവും കർഷകർക്കുണ്ടാകും സ്വാമിനാഥൻ കമ്മിഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പ്രകാരമാണ് സ്ർക്കാർ പരിഷ്ക്കാരങ്ങൾ നടപ്പാക്കുന്നതെന്ന് പ്രധാന്മ്ന്ത്രി പറഞ്ഞു ജൽ ജീവൻ ദൌത്യത്തിൽ ഒരു വർഷത്തിനകം രണ്ട് കോടി കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാനായെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ബിഹാറിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കും മണിപ്പൂരിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് ഏഴിന് നടക്കും

അതേസമയം കേരളത്തിലെ കൂട്ടനാട് ചവറ നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഏതാനും മാസത്തേക്ക് മാത്രമായി സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മിഷന്റെ തീരുമാനം

അദ്ദേഹം പരിപൂർണ്ണ ആരോഗ്യവാനാണെന്നും രോഗലക്ഷണങ്ങൾ ഒന്നും പ്രകടിപ്പിക്കുന്നില്ലെന്നും ഉപരാഷ്ട്രപതിയുടെ കാര്യാലയം വൃക്തമാക്കി

നായിഡു വീട്ടുനിരീക്ഷണത്തിലാണ്

ഇത് നാലാം തവണയാണ് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം ഏഴായിരം മറി കടക്കുന്നത്

കോവിഡ് പ്രതിസന്ധി നേരിടുന്നതിന് അടച്ചുഷ്ട്ടിട്ടൽ ഒരു പരിഹാര മാർഗമല്ല എന്നാൽ നിയന്ത്രണങ്ങൾ കർശ്നമായി പാലിക്കണമെന്ന് അഭിപ്രായമുയർന്നു വിവാഹ് മരണം രാഷ്ട്രീയ ചടങ്ങുകൾ തുടങ്ങിയവയിൽ പങ്കെടൂക്കു്ന്ന്വരുടെ എണ്ണം സർക്കാർ നിശ്ചയിക്കും

നാടിനെയും ജനങ്ങളെയും മുൻനിർത്തിയുള്ള ഉത്തരവാദിത്തപൂർണമായ പ്രവർത്തനം ഉറപ്പാക്കാൻ ഒരുമിച്ച് നീങ്ങണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർഥിച്ചു

ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര നിയമവേദികളിൽ പരാതി ഉന്നയിക്കാൻ പാക്കിസ്ഥാന് അവകാശമില്ല അനധികൃതമായി കൈവശം വെച്ചിട്ടുള്ള ഇന്തൃൻ മണ്ണിൽ നിന്നും പിൻവാങ്ങണമെന്നും വിദേശകാരൃ മന്ത്രാലയം ആവർത്തിച്ചു ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ തെരഞ്ഞെടുപ്പും കാവൽസർക്കാരും സംബന്ധിച്ച ഉത്തരവും അനന്തര നടപടികളും ഇന്ത്യ തള്ളി

എസ് ബദൌരിയ യുദ്ധമില്ലെങ്കിലും സമാധാന മില്ലെന്ന സ്ഥിതിയാണെന്നും കിഴക്കൻ ലഡാക്കിൽ ചൈനയുമായുള്ള തർക്കങ്ങളെ പരാമർശിച്ച് വ്യോമസേനാ മ്നേധാവി പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കൊറോണ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഓഫീസുകൾ മാളുകൾ ആവാസ സമുച്ചയങ്ങൾ എന്നിവിടങ്ങളിൽ മുഖാവരണം ഇല്ല എങ്കിൽ പ്രവേശനം ഇല്ല എന്ന സന്ദേശം പതിപ്പിക്കും മുഖാവരണ്ടു ധരിക്കാത്തവർക്ക് കർശനമായി പിഴ ചുമത്താനും നിർദ്ദേശ്രമുണ്ട്

വൻ തോതീലുള്ള ആൾക്കൂട്ട ആഘോഷങ്ങൾക്കു പകരം ആരോഗ്യ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ സർക്കാർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു

ബാറ്റിംഗ്ലില്ക് ബൌളിംഗിലും മികച്ച പ്രകടനം കാഴ്ചവച്ച് ഹൈദരാ്ബാദിന്റെ ഈ സീസണിലെ കന്നിവിജയമാണിത് ഇന്ന് ശ്രാജ്ജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും

ഐ സൊസൈറ്റിയുടെയും പ്രസിഡന്റായി പ്രമുഖ ചലച്ചിത്രകാരൻ ശേഖർ കപൂർ നിയമിതനായി